വികസനത്തിന്റെയും സാമ്പത്തിക വളർച്ചയുടെയും പാതയിൽ രാജൃം മികച്ച മുന്നേറ്റം സൃഷ്ടിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഗുജറാത്തിലെ സൂറത്തിലൂണ്ടായ തീപിടിത്തത്തിൽ കെട്ടിട നിർമാതാക്കളുടെയും മുനിസിപ്പൽ കോർപ്പറേഷന്റെയും ഭാഗത്ത് വൻ വീഴ്ചയെന്ന് പ്രാഥമിക റിപ്പോർട്ട്

വാരാണസിയിൽ ഇന്നലെ ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലും തൊഴിലാളികളും അത്ഭൂതങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും കഠിനാധാനത്തിനും സുതാര്യതയ്ക്കും ബദൽമാർഗങ്ങൾ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യം തന്നെ തിരഞ്ഞെടുത്തത് പ്രധാനമന്ത്രിയായിട്ടാണെങ്കിലും തൊഴില്വാളിയായി തുടരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി

അയൽ രാജ്യങ്ങളുമായുളള ബന്ധം ദൃഢപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നയത്തിന്റെ ഭാഗമായാണ് ഇത് എന്ന് വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഷാങ്ഹായ് സഹകരണ കോർപ്പറേഷൻ ചെയർമാൻ കൂടിയായ കിർഗ്സ് റിപ്പബ്ലിക് പ്രസിഡന്റിനേയും പ്രവാസി ഭാരതീയ ദിവസിൽ മുഖ്യാതിഥി ആയിരുന്ന മൌറീഷ്യസ് പ്രധാനമന്ത്രിയേയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് രാഷ്ട്രപതി ഭവനിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ഗവർണർ രാംനാഥ് കോവിന്ദ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ് അനിരുദ്ധ ബോസ് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി തള്ളിയത്

ടി കമ്മീഷണറേറ്റീടുന്റ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്

വടക്കൻ കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ ഹന്ദ്വാരയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം

ഇയാളെ വീടിനു പുറത്ത് ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തുകയായിരുന്നു ആശുപത്രിയിലേയ്ക്കു കൊണ്ടുപോകും വഴി മരിച്ചു കഴിഞ്ഞ മാർച്ചിൽ ഇവിടെ രണ്ട് ഭീകരരെ കൊലപ്പെടുത്തിയിരുന്നു ഏറ്റുമുട്ടലിനിടെ നാല് സി

എഫ് ഭടൻമാരും രണ്ട് പോലീസുകാരും വീരമൃത്യു വരിച്ചു

നഗര വികസന വിഭാഗം പ്രിൻസിപ്പൽ സെക്രട്ടറി മുകേഷ് പുരി ഇന്നലെയാണ് ഗവൺമെന്റിന്റ് റിപ്പോർട്ട് നൽകിയത്

എളുപ്പം തീപിടിക്കാൻ സാധ്യത്യുള്ള സ്ഥലത്താണ് ക്സാസ് മുറി പ്രവർത്തിച്ചിരുന്നതെന്നും റിപ്പർട്ടിൽ പറയുന്നു

ജെ

ഗുവാഹത്തിയിൽ ഇന്നലെ നടന്ന ബി ജെ

അടുത്ത മാസം ഏഴിനാണ് രാജ്യസഭയിലേയ്ക്കുള്ള തെരഞ്ഞെടുപ്പ് അസംമിലെ മറ്റൊരു സീറ്റിലേയ്ക്ക് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ അസം ഗണപരിഷത്ത് നേതാവ് ബിരേന്ദ്ര പ്രസാദ് ബൈഷ്യയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും

മൻമോഹൻസിംഗാണ് രാജ്യസഭയിൽ അസമിനെ പ്രതിനിധീകരിച്ചിരുന്നത്

ടി

ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സംഗീത ദിൻഗ്ര ഡെഗാൾ അധ്യക്ഷത വഹിക്കും

ടി

ഇ ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു

പ്രതിരോധ ഗവേഷണ വിഭാഗം വികസിപ്പിച്ച ഈ മിസൈലിന്റെ രണ്ടാമത്തെ പരീക്ഷണ വിജയമാണ് ശത്രു വിമാനങ്ങളെയും ഡ്രോണുകളെയും തകർക്കാൻ ഇത്

ഇന്ന് നടക്കുന്ന കെ

സി സി യോഗത്തിൽ സന്ദർശനത്തിന് അന്തിമ രൂപം നൽകും വയനാട് വോക്സഭാ മണ്ഡലത്തിൽ നിന്നും അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റ് എ ഐ സി സി അദ്ധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് കൈമാറി

കനത്ത തെലങ്കാന ഒഡീഷ പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിൽ ഇന്നലെ കനത്ത ഉഷ്ണതരംഗം അനുഭവപ്പെട്ടു

ഈ വേനൽക്കാലത്തെ ഏറ്റവും ഉയർന്ന താപനിലയാണ് ഇത്

ഒഡീഷയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ രണ്ട് ദിവസം കൂടി ഉഷ്ണതരംഗം അനുഭവപ്പെടുമെന്നും ജനങ്ങൾ സൂര്യാഘാതത്തിൽ നിന്ന് രക്ഷനേടുന്നതിനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു

വിദർഭ ആന്ധ്രാപ്രദേശ് തെലങ്കാന ഒഡീഷ തമിഴ്നാട് മഹാരാഷ്ട്ര ഹരിയാന എന്നിവിടങ്ങളിൽ ഇന്നും ഉഷ്ണതരംഗം അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാഫ്യിർട്ടീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് ചെയ്യുന്നു

അനധികൃതമായി രാജ്യത്തേക്ക് കുടിയേറിയ ഇവർക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല

ബംഗ്ലാദേശികൾ അനധികൃതമായി താമസിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അറസ്റ്റെന്ന് എ

ജി പി അസിം അരുൺ അറിയിച്ചു

ട്രംപിന്റെ പ്രസ്താവന ഇറാനിലെ ജനതയെ അപമാനിക്കുന്നതാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മൊഹമ്മദ് ജവാദ് സരിഫ് പ്രതികരിച്ചു മേഖലയിൽ സംഘർഷം സൃഷ്ടിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്

മധ്യേഷ്യയിൽ സൈനിക വിന്യാസം നടത്തി മേഖലയെ ഭീതിയിലാക്കുന്നത് അമേരിക്കയാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി കുറ്റപ്പെടുത്തി

എ ഇ സൌദി അറേബ്യ എന്നീ രാഷ്ട്രങ്ങളിലാണ് സന്ദർശനം നടത്തുന്നത് ഇറാൻ വിഷയത്തിൽ മറ്റു രാജ്യങ്ങളുടെ പിന്തുണ തേടുന്നതിനാണ് സന്ദർശനം

ഇറാന്റെ പിന്തുണയുള്ള ഇറാഖി ഭീകരവാദികളെ അമേരിക്ക ആക്രമിച്ചിരുന്നു ഇറാൻ ഉപരോധ വിഷയത്തിൽ സൌദി അറേബൃ അമേരിക്കയെ പിന്തുണയ്ക്കുന്നുണ്ട്

ഒരു മാസമായി ഏർപ്പെടുത്തിയിരുന്ന അടിയന്തരാവസ്ഥ പിൻവലിച്ചു വിദേശ സ്ഥാനപതിമാരുടെ യോഗത്തിനുശേഷം നടത്തിയ പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്

എസ് സാന്നിധ്യമുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കി

ജി പി ലോക്നാഥ് ബെഹ്റ സുരക്ഷാ ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി തീരമേഖല ലക്ഷ്യമിട്ട് ഐ എസ് ഭീകരർ എത്തുന്നതായി കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു

പുരുഷ വിഭാഗം സിംഗിൾസിൽ സ്പെയിനിന്റെ വൈ ഹാൻഫ്മാനെയാണ് നദാൽ പരാജയപ്പെടുത്തിയത്

ലിയാൻഡർ പെയ്സ് രോഹൻ ബൊപ്പണ്ണ ദിവിജ് ശരൺ ജീവൻ നെടുഞ്ചെഴിയൻ എന്നീ ഇന്ത്യൻ താരങ്ങൾ ഡബിൾസ് ഇനത്തിൽ മത്സരിക്കുന്നുണ്ട്

ആഫ്രിക്കൻ പ്രസിഡന്റ് ആൻഡ്രി റെജോലിനയും ദീർഘകാല എതിരാളിയായ മാർക്ക് റവലോമനാനയും തമ്മിലുള്ള പുതിയ റൌണ്ട് പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പ്